ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെ എല്ലാ രാജ്യങ്ങളും സത്വരവും ശക്തവുമായ നടപടി സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും നീതിക്കും തുലൃതയ്ക്കുമായി ഗാന്ധിയോടൊപ്പം ദണ്ഡിയിലേക്ക് മാർച്ച് ചെയ്തവർക്കും പ്രധാനമന്ത്രി ശ്രദ്ധാജ്ഞലി അർപ്പിച്ചു

സ്വന്തം മണ്ണിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് ഇന്ത്യയും അമേരിക്കയും പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു

ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനഞ്ഞ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സജീവം

എസ് എംബസിയിൽ അവശേഷിക്കുന്ന നയതന്ത്രജ്ഞരെ അമേരിക്ക തിരികെ വിളിക്കും

ടർക്കി പ്രസിഡന്റ് തയ്പ് എർദോഗനുമായി നടത്തിയ ടെലഫോൺ സംഭാഷണത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ആഗോള സമാധാനത്തിനും സുരക്ഷയ്ക്കും നേരെയുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായി ഭീകരവാദം നിലനിൽക്കുകയാണെന്ന് ശ്രീ

അടുത്തിടെ ഇന്ത്യയിൽ നടന്ന ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവർക്ക് ടർക്കി പ്രസിഡന്റ് ആദരാഞ്ജലികൾ അർപ്പിച്ചു അബുദാബി കിരീടവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ടെലഫോണിൽ സംസ്ടാരിച്ചു എല്ലാ മേഖലകളിലും ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്തുന്നതിൽ ഇരുനേതാക്കളും സന്തുഷ്ടി പ്രകടിപ്പിച്ചു സൌദി വിദ്ദേശകാര്യ സഹമന്ത്രി അബ്ദേൽ ബിൻ അഹമ്മദ് അൽ ജുബൈർ ശ്രീന്നലെ ന്യൂഡൽഹിയിൽ ശ്രീ

ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയോട് സൌദി പ്രകടിപ്പിക്കുന്ന പൂർണ്ണ് ഐക്യ്ദാർഡ്യത്തിന് പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി വീണാ മുകുന്ദൻ ദണ്ഡി മാർച്ച് ആസൂത്രണം ചെയ്തതിലും അതിന്റെ എല്ലാ വിശദാംശങ്ങളും നടപ്പിലാക്കിയതിലും സർദാർ കൃത്യമായി വല്പഭായ് പട്ടേലിന് മുഖ്യ സ്ഥാനമാണ് ഉള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദമോദി പറഞ്ഞു മാർച്ച് സംബന്ധിച്ചും ഗാന്ധിജിയുടെ ആദർശങ്ങളെ സംബന്ധിച്ചും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗാന്ധിജിയെ ഭീഷണിപ്പെടുത്താമെന്ന പ്രതീക്ഷയിൻമേൽ ദണ്ഡി മാർച്ച് തുടങ്ങുന്നതിന് മുമ്പ് സർദാർ പട്ടേലിനെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തതും ശ്രീ നരേന്ദ്രമോദി ഓർമ്മിച്ചു എന്നാൽ കോളനിവൽക്കരണത്തിനെതിരായ ഇന്ത്യക്കാരുടെ പ്രതിരോധം ഇതിന് എല്ലാം ഉപരിയായി നിലകൊള്ളുകയാണ് ഉണ്ടായത് മഹാത്മാഗാന്ധി ഉപ്പുവാരിയെടുത്ത ദണ്ഡി കഴിഞ്ഞ മാസം സന്ദർശിച്ചതും പ്രധാനമന്ത്രി അനുസ്മരിച്ചു

മോദി ആരോപിച്ചു കുടുംബവാഴ്ചയിലൂന്നിയ രാഷ്ട്രീയത്തെ മഹാത്മാഗാന്ധി എതിർത്തപ്പോൾ ഈ രീതിയാണ് കോൺഗ്രസ് പിന്തുണയ്ക്കുന്നത് എന്നാൽ ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് മഹാത്മാഗാന്ധിയുടെ പാതയാണ് പിന്തുടരുന്നത് കോൺഗ്രസിന്റെ കുടുംബവാഴ്ച എന്ന സംസ്കാരത്തിൽ നിന്ന് ഇന്ത്യയെ സ്വതന്ത്രമാക്കുന്നതിലാണ് കേന്ദ്രം ശ്രദ്ധ ഊന്നിയിട്ടുള്ളതെന്നും ശ്രീ മോദി പറഞ്ഞു ന്യൂസ്ഡെസ്ക് ആകാശവാണി

ഭീകര പ്രവർത്തനങ്ങൾക്കുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ നീക്കം ചെയ്യാനായി പാകിസ്ഥാൻ സംഘടിത ശ്രമം നടത്തേണ്ടതുണ്ട് വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലേയും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മൈക്കൽ പോംപിയോയും വാഷിംഗ്ടണിൽ ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനമെടുത്ത് ്യൂ ഭീകര പ്രവർത്തനങ്ങളെ രൂപത്തിലും പിന്തുണയ്ക്കുകിയോ് സഹായിക്കുകയോ ഏത് ചെയ്യുന്നവരെ ഉത്തരവാദികളാക്കുന്നതിൽ ഇരു രാഷ്ട്രങ്ങളും യോജിപ്പിലെത്തിയതായി പ്രസ്താവനയിൽ ഇരു രാജ്യങ്ങൾക്കും താൽപര്യമുള്ള അറിയിച്ചു മറ്റ് വിഷയങ്ങളിൽ ശ്രീ

പോംപിയോയും ചർച്ചകൾ നടത്തുകയും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു

പാകിസ്ഥാനിലെയും പാക് അധീനകശ്മീരിലെയും എല്ലാ തീവ്രവാദ കൃാമ്പുകളും ഇല്ലായ്മ ചെയ്യണമെന്ന് ഇവർ ഇസ്താമാബാദിനോട് ആവശ്യപ്പെട്ടു ഇന്ത്യയ്ക്കെതിരായ യുദ്ധത്തിന് തീവ്രവാദികളെ ഉപയോഗിക്കുന്ന പാകിസ്ഥാൻ നടപടിയെ യുണൈറ്റഡ് കശ്മീർ പീപ്പിൾസ് നാഷണൽ പാർട്ടി ചെയർമാൻ സർദാർ ഷൌക്കത്ത് അലി കശ്മീരി കുറ്റപ്പെടുത്തി

കേവലം ഒരു മേഖല മാത്രമല്ല മറിച്ച് ലോകം മുഴുവൻ തീവ്രവാദത്താൽ ബുദ്ധിമുട്ടുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു

അഞ്ച് ദിവസത്തെ മേളയിൽ അമേരിക്ക റഷ്യ ചൈന ബ്രിട്ടൺ ജർമ്മനി ഇറ്റലി സിംഗപ്പൂർ തുടങ്ങിയി ഇ്രുപതോളം രാജ്യങ്ങൾ പങ്കാളികളാണെന്ന് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു

ജെ പിയുടെ പ്രകടന പത്രിക കമ്മിറ്റി ഇന്നലെ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു ഒരു റിപ്പോർട്ട് വിവിധ സാമൂഹ്യ രാഷ്ട്രീയ വിദേശകാര്യ നയ വിഷയങ്ങളിൽ ബി ജെ

പാർട്ടി പ്രകട പത്രികയിൽ ഉൾപ്പെടുത്താനുള്ള വിഷയങ്ങൾ സംബന്ധിച്ച് ജനങ്ങളിൽ നിന്ന് അഭിപ്രായം ആരാഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗം ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ചേരും ഉത്തർപ്രദേശിലെ ലക്നൌവിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എൽ

എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മാതൃകാ പെരുമാറ്റചട്ടം കൃത്യമായി പാലിക്കണമെന്ന് പശ്ചിമബംഗാളിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് വകുപ്പ് നിർദ്ദേശം നൽകി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആരിഫ് അഫ്താബ് ഈ വിഷയത്തിൽ ഇന്നലെ കൊൽക്കത്തയിൽ യോഗം ചേർന്നു സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ തൃണമുൽ കോൺഗ്രസ് ഇന്ന് യോഗം വിളിച്ചിട്ടുണ്ട് ആറ് രാഷ്ട്രീയ പാർട്ടികളുടെ സഖ്യമായ പഞ്ചാബ് ഡെമോക്രാറ്റിക് അലയൻസ് തെർണ്ഞടുപ്പിനുള്ള ഏഴ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു

എം

മേഘാലയയിൽ ഭരണകക്ഷിയായ മേഖാലയ ഡെമോക്രാറ്റിക് അലയൻസ് സംസ്ഥാനത്തെ ആകെയുള്ള രണ്ട് ലോക്സഭാ സീറ്റുകളില്ലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്

കോൺഗ്രസ് അദ്ധ്യക്ഷൻ രാഹുൽഗാന്ധിയുടെ കേരള സന്ദർശന വേളയിൽ സ്ഥാനാർത്ഥികളെപ്പറ്റി ചർച്ചയുണ്ടാകുമെന്നാണ് സൂചന നാളെയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം

ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് എന്നാൽ ചില സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ധാരണ പട്ടിക വൈകാൻ ഇടയാക്കിയേക്കുമെന്നാണ് സൂചന സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച എൽ

എഫ് പ്രചാരണ പരിപാടികൾ ശക്തമാക്കി

ഇത് സംബന്ധിച്ച ബുക്ക്ലെറ്റ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നൽകിയിട്ടുണ്ട്

ഇതിന് മുന്നോടിയായി അദ്ദേഹം ഇന്നലെ സംസ്ഥാന നിയമസഭയിൽ നിന്ന് രാജി വച്ചിരുന്നു സ്പീക്കർക്കാണ് അദ്ദേഹം രാജികത്ത് സമർപ്പിച്ചത് മാൻവധാർ ഉൻചാ ഹൽവാദ് ധരന്ദ്ര എന്നീ മണ്ഡലങ്ങളിൽ നിന്നുള്ള കോൺഗ്രസ് എം എൽ എ മാരും നേരത്തെ രാജിവച്ചിരുന്നു

ജെ

ഒസാമ ബിൻലാദനെ ഒസാമജി എന്ന് വിശേഷിപ്പിച്ചവരോടൊപ്പമാണ് രാഹുൽഗാന്ധിയെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് ആരോപിച്ചു എന്നാൽ രാഹുൽഗാന്ധിയുടെ പരാമർശത്തെ ബി ജെ പിയും ഒരു വിഭാഗം മാധ്യമങ്ങളും വളച്ച് ഒടിക്കുകയാണെന്ന് കോൺഗ്രസ് വക്താവ് രൺദീപ് സിങ് സുർജെവാല പറഞ്ഞു

വി ഐ

ആദ്യാനികുതി വകുപ്പ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റ് അന്വേഷണവും ആരംഭിച്ചു

മണ്ണിടിച്ചിലിൽ കുടുങ്ങിപ്പോയ വാഹനങ്ങൾക്ക് മാത്രമായിരിക്കും ശ്രീനഗറിൽ നിന്നും ജമ്മുവിലേക്ക് യാത്ര ചെയ്യാൻ ആദ്യം അനുമതി നൽകുന്നത്

ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ പുതിയ വാഹനങ്ങളെ കടത്തിവിടില്ലെന്ന് അധികൃതർ അറിയിച്ചു

എംബസിയിൽ അവശേഷിക്കുന്ന നയതന്ത്രജ്ഞരെ കൂടി തിരികെ വിളിക്കാൻ അമേരിക്ക തീരുമാനിച്ചു

എസ്

ചെളി രൂപപ്പെട്ടത് മൂലം നിരവധി റോഡുകളിൽ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു സുരക്ഷാ മുൻകരുതൽ എന്ന നിലയ്ക്ക് സാവോ പോളോയിലെ ജനങ്ങൾ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്നും മുന്നറിയിപ്പുണ്ട്

എസ് എൽ സി പരീക്ഷ നാളെ തുടങ്ങും